മുൻഗണനാ പട്ടികയിൽ കയറിക്കൂടിയ അനർഹരെ കണ്ടെത്തി ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സിവിൽ സപ്ലൈസ് കമ്മീഷണർ

പൊതുജനങ്ങൾക്കുള്ള പ്രിരാതി അറിയിക്കാൻ കോൾ സെന്റർ ആരംഭിച്ചു കുട്ടികൾക്കെത്തിരായി അതിക്രമങ്ങൾ തടയാൻ ന് കൈകോർക്കാം കുട്ടികൾക്കൊപ്പം എന്ന പ്രചാരണ പരിപാടിക്ക് അടുത്ത മാസം ഒന്ന് മുതൽ തുടക്കമാകും

ആത്മഹത്യ ചെയ്തത് കുടുംബപ്രശ്നം മൂലമാണെന്ന് ആത്മഹത്യാക്കുറിപ്പ് ബന്ധുക്കൾ പോലീസ് കസ്റ്റഡിയിൽ

ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരശ്ശീല വീഴും

പൊതുജനങ്ങൾ ഈ സൌകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് സിവിൽ സപ്ലൈസ് ഡയറക്ടർ അറിയിച്ചു സിവിൽ സപ്ലൈസ് ഇൻളട്രിാ സംസ്ഥാനത്തെ റ്റേഷൻ ഉപഭോക്താക്കളുടെ മുൻഗണനാ പട്ടികയിൽ കയറിക്കൂടിയ് അനർഹരെ കണ്ടെത്താൻ നടപടികൾ ആരംഭിച്ചതായി സിവിൽ സപ്ലൈസ് കമ്മീഷണർ സി

ലത ആകാശവാണിയോട് പറഞ്ഞു

സ്കൂളുകൾ കേന്ദ്രീകരിച്ച് രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണം നൽകും കുട്ടികളുടെ അവകാശങ്ങൾ ഉറപ്പിക്കാൻ എല്ലാ സ്കൂളുകളിലും ചൈൽഡ് റൈറ്റ്സ് ക്ലബ്ബുകൾ രൂപീകരിക്കും

കുടുംബപ്രശ്നം മൂലമാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്ന് സംഭവസ്ഥലത്തു നിന്ന് ലഭിച്ച ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു കുറിപ്പിന്റെ ചില ഭാഗങ്ങൾ കത്തിപ്പോയിട്ടുണ്ട്

കത്ത് കണ്ടെത്തിയതിനെ തുടർന്ന് മരിച്ച ലേഖയുടെ ഭർത്താവ് ഭർതൃമാതാവ് കൃഷ്ണമ്മ അടക്കമുള്ള ബന്ധുക്കളെ ചന്ദ്രൻ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു

ഇതേ തുടർന്ന് നെയ്യാറ്റിൻകരയിൽ ബാങ്കിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു

പി ജയരാജൻ നെയ്യാറ്റിൻകരയിൽ അമ്മയുടെയും മകളുടെയും ആത്മഹത്യയിൽ ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് മന്ത്രി

കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നും അദ്ദേഹർ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു

ചീഫ് സെക്രട്ടറി ടോം അദ്ദേഹം ജോസ് വ്യവസായ സെക്രട്ടറി ഇളങ്കോവൻ തുടങ്ങിയവരും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു

ദിനേശൻ ഇടുക്കി ലോകസഭാ മണ്ഡലത്തിൽ കള്ളവോട്ട് വിഷയത്തിൽ എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ കുറ്റക്കാർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ജില്ലാ വരണാധികാരി കൂടിയായ കലക്റ്റർ എച്ച്

ജില്ലയിൽ രണ്ട് മണ്ഡലങ്ങളിൽ കള്ളവോട്ട് നടന്നതായി പരാതി ലഭിച്ചിട്ടുണ്ട്

വാസുകി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്ത് തിരികെ അയക്കുന്ന പോസ്റ്റൽ ബാലറ്റ് പേപ്പറുകൾ പോസ്റ്റ് ഓഫീസ് മുഖേനയേ അയക്കാവൂ എന്ന് ജില്ലാ ഇലക്ഷൻ ഓഫിസർ കൂടിയായ തിരുവനന്തപുരം കളക്ടർ ഡോ

കളക്ടറേറ്റിലോ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലോ പോസ്റ്റൽ ബാലറ്റ് നേരിട്ടു സ്വീകരിക്കില്ല

ജൂൺ മൂന്നിന് ക്ലാസ് ആരംഭിക്കത്തക്കവിധമാണ് പ്രവേശനനടപടികൾ ക്രമീകരിച്ചിരിക്കുന്നത്

പി ദീപക് ആകാശവാണിയോട്

എസ്

ബി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു പദ്ധതിയുടെ ഭാഗമായി രണ്ട് കിലോമീറ്ററോളം ലൈൻ മാത്രമേ ഇതുവരെ സ്ഥാപിക്കാനായിട്ടുള്ളൂ അലൈൻമെന്റ് മാറ്റുന്നത് കൂടുതൽ പരാതികൾക്കിടയാക്കുമെന്നും ഇതുമൂലം പദ്ധതി വൈകുമെന്നും കെ എസ്

ബി സത്യവാങ്മൂലത്തിൽ പറയുന്നു

ഇന്ന് പുലർച്ചെ തന്ത്രി കണ്ഠരര് രാജീവരൂട്ടെ കാർമ്മികത്വത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹ്യോമത്തൊടെയാണ് പൂജകൾക്ക് തുടക്കമായത്

വിവേക് എക്സ്പ്രസ്സ് ബ്രേബക്ക് തകരാറിനെത്തുടർന്ന് പിടിച്ചിട്ടതാണ് പാതയിലെ ഗതാഗതത്തിന്റെ താളം തെറ്റിച്ചത് എറണാകുളം നോർത്ത് സ്റ്റേഷനിലുണ്ടായ സിഗ്നൽ തകരാറും ട്രെയിനുകൾ വൈകാൻ കാരണമായി

ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ചു

എസ് ആർ ടി

വാടക ബസുകൾ ക്ഷണീച്ച് ആദ്യം ടെൻഡർ വിളിച്ചെങ്കിലും കാര്യമായ പ്പിങ്കാളിത്തം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും കള്ടിൻഡ്ർ വിളിക്കുന്നത് മന്ത്രി എ കെ ശശീന്ദ്രൻ കെ എസ് ആർ

ഡി എം

ദിനേശും ഇത് സംബന്ധിച്ച് ചർച്ച ്ഥിടത്തി അന്തിമ തീരുമാനമെടുക്കും

പത്തു ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവകാഴ്ചകൾക്കാണ് ഇന്നലെ കൊടിയേറിയത്